കൊറോണ വൈറസ് വ്യാപനത്തന്റെ പശ്ചാത്തലത്തിൽ ജീവൻരക്ഷാ ഉപകരണങ്ങളുടെയും മരുന്നുകളുടെയും കസ്റ്റംസ് ഡ്യൂട്ടിയും സെസ്സും കേന്ദ്രം ഒഴിവാക്കി

സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭൂർണപ്രദേശങ്ങളിലെയും കൃഷി മന്ത്രിമാരുമായി കേന്ദ്രിക്ട്യ്ഷി മന്ത്രി നരേന്ദ്രസിംങ് തോമർ ചർച്ച നടത്തി

മുരളീധരൻ

മരിച്ചവരുടെ എണ്ണം ഒരു ലക്ഷത്തോട് അടുക്കുന്നു

ദേവാലയങ്ങളിൽ കോവിഡ് ജാഗ്രത പെരുമാറ്റ ചട്ടമനുസരിച്ച് ചടങ്ങുകൾ

മുരളീധരൻ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യൻ എംബസിയുടെ കാറന്റീൻ കേന്ദ്രങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി

വിദേശത്ത് മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിൽ എത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയായി ഇന്ന് ഡൽഹിയിലും കൊച്ചിയിലും മൃതദേഹങ്ങൾ എത്തും

സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ആവശ്യമായ ഇടങ്ങളിൽ എംബസികൾ ഇടപെടുമെന്നും മന്ത്രി അറിയിച്ചു പ്രവാസി മലയാളികൾക്ക് നാട്ടിലെത്താൻ മേയ് മാസം വരെ കാത്തിരിക്കണമെന്നും ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കുമെന്നും കേന്ദ്രൂ സ്റ്റ്ഹ്മന്ത്രി വി മുരളീധരൻ അറിയിച്ചു

കേടാകുന്ന കാർഷിക ഉത്പ്പന്നങ്ങൾ പച്ചക്കറികൾ പഴങ്ങൾ തുടങ്ങിയവയ്ക്ക് ആദായകരമായ വില ഉറപ്പാക്കുന്നതിന് വിപണിയിൽ ഇടപടേണ്ട പദ്ധതിയുടെ വിശദാംശങ്ങൾ കൃഷി സഹകരണ കർഷകക്ഷേമ വകുപ്പ് എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നല്കിയിട്ടുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മരണനിരക്ക് കുറഞ്ഞെങ്കിലും രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ് അമേരിക്കയിൽ ഇന്ന് ആറും ചൈനയിൽ ഒരു മരണവും റിപ്പോർട്ട് ക്ഷ്യ്തു ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഉള്ളത് അമേരിക്കയിലാണ്

കൂടുതൽ പേരിലേക്ക് വൈറസ് വ്യാപനം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം ഊർജ്ജിതമാക്കി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി പി

ചെറുകല്ലായിലെ രോഗിയുമായി സമ്പർക്കം പുലർത്തിയ രണ്ട് പേരെ കണ്ടെത്തി വീടുകളിൽ നിരീക്ഷണത്തിലാക്കി

മന്ത്രി

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്

ഏഴ് പേർ ചികിത്സയിൽ തുടരുന്നു

ഇതുകൂടാതെ പോസിറ്റീവായ മറ്റു ജില്ലക്കാരായ രണ്ടു പേരും കോഴിക്കോട് ചികിത്സയിലാണ്

ൃ ് മിക്ക്യിടങ്ങളിലെയും ചടങ്ങുകൾ ഓൺ ലൈൻ മാധ്യമങ്ങളിലൂടെ തത്സമയം വിശ്വാസികൾക്ക് കാണാനുള്ള സൌകര്യാട്ട ഒരുക്കിയിട്ടുണ്ട് ദേവാലയങ്ങളിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകളിൽ വൈദികരും ശുശ്രൂഷകരുമടക്കം അഞ്ച് പേരിൽ കൂടുതൽ പങ്കെടുത്തില്ല അഞ്ചൽ സെന്റ് ജോർജ്ജ് ഓർത്തഡോക്സ് വലിയപള്ളിയിലെ ഫാദർ ഷിനോ കെ തോമസ് ആകാശവാണിയോട്

ക്രിസ്തുവിന്റെ ധൈര്യവും ധാർമികതയും നീതിബോധവും വേറിട്ടു നിൽക്കുന്നതായും അദ്ദേഹം വൃക്തമാക്കി ക്രിസ്തുവിന്റെ സത്യം സേവനം നീതി എന്നിവയോടുള്ള പ്രതിബദ്ധതയെ സ്മരിക്കുന്നതായും ദുഖവെള്ളി സന്ദേശത്തിൽ അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു ഇടുക്കി ഇൻട്രോ ദുഖവെള്ളി ആചരണത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾ പ്രാദേശിക ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലും തത്സമയം സംപ്രേഷണം ചെയ്യുകയാണ്

രാഘവൻ അറിയിച്ചു

തങ്ങൾ വിളയിച്ചെടുത്ത കാർഷിക ഉൽപന്നങ്ങൾ വീടുവീടാന്തരം വിതരണം ചെയ്യുകയാണ് കർഷകരായ സന്നദ്ധ പ്രവർത്തകർ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി ആർ

ലോകത്തിലെ ് ഏറ്റവും വലിയ സിൻക്രണസ് ഗ്രിഡായ ഇന്ത്യൻ നാഷണൽ പവർ ഗ്രിഡിന് ഈ ഏറ്റക്കുറച്ചിലുകൾ വിജയകരമായി കൈകാരൃം ചെയ്യാൻ സാധച്ചതായി ഐ

ട്രിച്ചിയിൽ അറിയിച്ചു വ്യാജ വാർത്ത കോവിഡ് പശ്ചാത്തലത്തിൽ രാജ്യത്തെ ലിംഗ നിർധാരണ നിരോധന നിയമം സസ്പെന്റ് ചെയ്തുവെന്ന പ്രചാരണം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ ഇതുസംബന്ധിച്ച രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രമേ കൊറോണമൂലം സസ്പെന്റ് ചെയ്തിട്ടുള്ളൂ

കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനു കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഏർപ്പെടുത്തിയ ഈ സംവിധാനം വ്യാജ വാർത്തകളുടെ നിജസ്ഥിതി അറിയാൻ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്

പോലീസുകാരെ വിന്യസിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായ ഇടവേളകളിൽ എത്തുന്ന ഈ ബസിൽ അണുനാശിനി തളിക്കാനുളള സംവിധാനമുണ്ട് പോലീസുകാർ പിൻവാതിലൂടെ പ്രവേശിച്ച് ബസ്സിനുളളിലൂടെ കടന്ന് മുന്നിൽ എത്തുന്ന സമയത്തിനുളളിൽ അവരെ പൂർണ്ണമായും അണുവിമുക്ത രാക്കാൻ ഈ സംവിധാനത്തിന് കഴിയുട്ടു എല്ലാ ജില്ലകളിലും ഈ സൌകര്യം ഉടൻ നിലവിൽ വരും

ചേമ്പറിലൂടെ പ്രവേശിക്കുന്നവരുടെ ശരീരം മുഴുവൻ അണു വിമുക്തമാക്കുന്ന വിധത്തിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് സമൂഹ അടുക്കള പത്തനംതിട്ട കളക്ടർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും നടത്തുന്ന സമൂഹ അടുക്കളയിലൂടെയും ബജറ്റ് ഹോട്ടലുകളിലൂടെയും അല്ലാതെ സ്വകാര്യ വൃക്തികളും സംഘടനകളും നടത്തുന്ന സമാന്തര ഭക്ഷണ വിതരണം അനുവദിക്കില്ലന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ പി

ജില്ലയിൽ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് കളക്റ്റർ ഈ കാര്യം വ്യക്തമാക്കിയത്